സഹായിക്കേണ്ടത് ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പൌരത്വ നിയമഭേദിഗ്തി ദേശീയ പൌരത്വ രജിസ്റ്റർ എന്നിവയെക്കുറിച്ച് ്ലോക രാജ്യങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ്

പൌരത്വ നിയമ ഭേദഗതിക്കെതീരെ പ്രതിഷേധിക്കുന്നവരെ പ്രധാനമന്ത്രി നിശിതമായി വിമർശിച്ചു പാകിസ്ഥാൻ നടത്തുന്ന ക്രൂരതയ്ക്കെതിരെയാണ് പ്രതിഷ്യേട്ടിക്കേണ്ടതെന്നും ശ്രീ

പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ മൂന്നാം ഗഡുവും വിതരണം ചെയ്തു

മികച്ച കർഷകർക്ക് കൃഷി കർമ്മൻ അവാർഡുകളും വിതരണം ചെയ്തു തമിഴ്നാട്ടിലും കർണാടകത്തിലും നിന്നുള്ള മീൻപിടുത്തക്കാർക്ക് ബോട്ടുകളും ആഴക്കടലിൽ വഴിക്കാട്ടുന്ന ട്രാൻസ്പോണ്ടറുകളും പ്രധാനമന്ത്രി വിതരണം ചെയ്തു

അവിടെ വൃക്ഷർത്തെ നട്ട അദ്ദേഹം മ്യൂസിയത്തിന് തറക്കല്ലിടുകയും ചെയ്തു

ഇന്ത്യയുടെ ആഭ്യന്തരകാര്യമാണ് ഇവയെന്ന് വിവിധ രാജ്യങ്ങളുടെ എംബസികളെ അറിയിച്ചിട്ടുണ്ട് പൌരത്വ നിയമ ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ലെന്ന് ലോക രാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ടെന്ന് ഗവൺമെന്റ് വക്താവ് രവീഷ് കുമാർ അറിയിച്ചു

പ്രമേയം തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

നിയമം കേരളത്തെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ലെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു

കൂടുതൽ വിവരങ്ങളുമായി ലിഖിത വിജ്യൻ വോയ്സ് സാങ്കേതികവിദ്യയും കാര്യക്ഷമത നിർമ്മാണ പ്രവർത്തനങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താ്ൻ ശ്രമിക്കുന്നത്

നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ദ്ദ സംസ്ഥാനങ്ങളുടെ വാർഷിക പ്രവർത്തന പദ്ധതിക്ക് മന്ത്രാലയം അനുമതി നൽകി

പഞ്ചായത്തുകളുടെ മികച്ച പ്രവർത്തനങ്ങൾക്കും സേവനമികവിനും ഗവൺമെന്റ് പിന്തുണ നൽകുന്നുണ്ട്

ഗ്രാമപഞ്ചായത്ത് വികസന പദ്ധതികൾ തയാറാക്കാനും നടപ്പിലാക്കാനുമായി ഏകീകൃത പോർട്ടൽ നടപ്പിലാക്കുന്നതും പുതിയ സംരംഭമാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി

യും നാഷണലിസ്റ്റ് കോൺഗ്രസ്സ് പാർട്ടിയുടെ മുതിർന്ന നേതാവുമായ ഡി

ത്രിപാഠി ഡൽഹിയിൽ അന്തരിച്ചു

ത്രിപാഠിയുടെ നിര്യാണത്തിൽ വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി പ്രകാശ് ജാവ്ദേക്കറും എൻ സി

നേതാവ് സുപ്രിയ സുലെയും അനുശോചിച്ചു

തീപിടിത്തത്തെ തുടർന്നുണ്ടായ സ്ഫോടനത്തിലാണ് ഫാക്ടറി കെട്ടിടം തകർന്നതെന്ന് അഗ്നിശമന സേന അറിയിച്ചു രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് അഗ്നിശമന സേനാംഗം കൊല്ലപ്പെട്ടതിൽ ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാലും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ദുഃഖം രേഖപ്പെടുത്തി

ശ്രീലങ്കൻ ടീമിനെ ലസിത് മലിംഗ നിയക്കും

കൂടുതൽ വിവരങ്ങളുമായി ് ലിഖിത ി വോയിസ് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഗ്രവേഷണങ്ങൾ പിന്തുടരാനാണ് ഫെല്ലോഷിപ്പുകൾ നൽകുന്നത് ഗ്വേഷണം നടത്താനുള്ള എല്ലാ സംവിധാനങ്ങൾക്കും ഫെല്ല്യാഷിപ്പ് ഉപയോഗിക്കാം

വേതനത്തിന് പുറമെ ഫെല്ലോഷിപ്പ് ലഭിച്ചവർക്ക് അഞ്ച് വർഷത്തേയ്ക്ക് അഞ്ച് ലക്ഷം രൂപ ഇതിന്റെ ഭാഗമായി കിട്ടും

ബുദ്ധിവൈഭവമുള്ള യുവ ശാസ്ത്രജ്ഞർക്ക് സ്വതന്ത്രമായി സമ്മർദ്ദങ്ങളില്ലാതെ ഗവേഷണം നടത്തുന്നതിനാണ് ഈ ഫെല്ലോഷിപ്പുകൾ വിതരണം ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

രണ്ടാം ലോക കേരള സഭയുടെ രണ്ടാം ദിവസത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമീപനരേഖ അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്രത്തെക്കൊണ്ട് ഒരു് ദേശീയ കുടിയേറ്റ നയം നടപ്പാക്കിക്കുന്നതിന് ലോക കേരള സഭ ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

അറിവുകൾ ആശയങ്ങൾ നൈപുണ്യം സാങ്കേതികജ്ഞാനം വിഭവങ്ങൾ എന്നിവയൊക്കെ ആ പാലം വഴി ഇവിടേക്കും ഒഴുകിയെത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

സംസ്ഥാനത്ത് പൊതുപ്പ്സ്വകാര്യ സ്വത്തുക്കൾക്ക് നാശമുണ്ടാക്കിയ വലിയ തോതിലുള്ളൂ അക്രമപ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഉത്തരവാദിത്വം പ്പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയ്ക്കാണെന്ന് അദ്ദേഹം പറഞ്ഞു

അടിയന്തര നടപടി സ്വീകരിക്കുന്നതിനായി ശിശുരോഗ വിദഗ്ധർ ഉൾപ്പെട്ട വിവിധ വിദഗ്ധ സംഘത്തെ മന്ത്രാലയം നിയോഗിച്ചിട്ടുണ്ട്

ഗുരു ഗോവിന്ദ് സിംഗിന്റെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു

സുർനകോട്ടിൽ നിന്നും ജമ്മുവിലേയ്ക്ക് പോകുകയായിരുന്ന ബസ് ലാംബെർഹിയിൽ റോഡിൽ നിന്നും തെന്നിമാറി താഴ്ചയിലേയ്ക്ക് പതിക്കുകയായിരുന്നെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

ഗോദരാ വെരാവൽ ജംഖാഭാലിയ ബൊട്ടാഡ് മോർബി എന്നിവിടങ്ങളിലാണ് മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുന്നതെന്ന് സംസ്ഥാന ഉപ മുഖ്യമന്ത്രി നിതിൻ പട്ടേൽ അറിയിച്ചു

ലഷ്കർ പ്രവർത്തകർക്ക് മൊബൈൽ ഫോൺ സിം കാർഡുകൾ റയിസ് അഹമ്മദ് ലോൺ നൽകിയെന്ന് കണ്ടെത്തിയിരുന്നു